തോമസ് ഐസക്

എക്സ് മീഡിയ കേസിൽ മുൻ ധനമന്ത്രി ചിദംബ രത്തെ അറസ്റ്റു ചെയ്യാൻ സിബിഐ നീക്കം ആരംഭിച്ചു

ആർ ക്യാംപിലെ സിവിൽ പൊലീസ് ഓഫീസർ എൻ കെ കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ ഡെപ്യൂട്ടി കമാൻഡന്റ് എൽ സുരേന്ദ്രനെ അറസ്റ്റു ചെയ്തു

എസ് പ്രണോയ് ലോക ബാഡ്മിന്റൺ ചാംപ്യൻഷിപ്പിന്റെ പ്രീ കാർട്ടറിൽ ങ്ങ ൽ കാലവർഷത്തിൽ നാശ നഷ്ടങ്ങളുണ്ടായ കേരളമുൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് സ്ഥിതി നേരിടാൻ സാധ്യമായ എല്ലാ നടപടി കളും സ്വീകരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രി അമിത്ഷാ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദേശം നൽകി ഈ സംസ്ഥാനങ്ങൾക്ക് ആവ ശ്യമായ എല്ലാ സഹായങ്ങളും നൽകണമെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതതല സമിതി യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു കനത്ത നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നിവേദനം ലഭിച്ച ശേഷം മന്ത്രിതല കേന്ദ്ര സംഘം ഒരു തവണ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന പതിവ് രീതി മാറ്റാൻ യോഗം തീരുമാനിച്ചു ഇനി മുതൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന സംഘം സംസ്ഥാന ങ്ങളുടെ നിവേദനം ലഭിച്ച ശേഷം നാശനഷ്ടങ്ങൾ വിശദമായി വിലയിരുത്തുന്നതിനായി വീണ്ടും ്രസന്ദർശനം നടത്തും നിലമ്പൂർ കവളപ്പാറയിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും

മൂന്ന് പെൺകുട്ടികളെയും എട്ട് പുരുഷൻമാ രെയുമാണ് ഇനി കണ്ടെത്താനുള്ളത് അപകടസ്ഥലത്തെ സമീപ വാസികളിൽനിന്ന് വിവരങ്ങൾ ശേഖരിച്ച് മാപ്പ് തയ്യാറാക്കിയാണ് തിരച്ചിൽ തുടരുന്നത് കവളപ്പാറയിൽ അപകടം നടന്ന മുത്തപ്പൻ മലയുടെ താഴ്ഭാഗമാണ് ഇനി തിരച്ചിലിന് അവശേഷിക്കുന്നത് ഈ ഭാഗത്ത് നാൽപ്പത് മുതൽ അമ്പത് അടി വരെ മണ്ണ് വന്നു വീണിട്ടു ണ്ട് പുത്തുമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താൻ പ്ര ത്യേക സംഘം ഇന്നും പരിശോധന നടത്തും

പുത്തുമലയിൽ നിന്നും ഏഴു കീലോമീറ്ററോളം താഴെയാണ് നിലവിൽ തിരച്ചിൽ നടത്തുത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്നും കണ്ടെത്തിയ ര ണ്ടു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടിയ മേഖലകൾ സന്ദർശിച്ച് അടി യന്തര റിപ്പോർട്ട് നൽകാൻ ദുരന്തനിവാരണ വകുപ്പ് ്വിദഗ്ധ സം ഘങ്ങളെ നിയോഗിച്ചു ഒരാഴ്ചക്കുള്ളിൽ പരിശ്രോധന റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദേശം ഉരുൾപൊട്ടിയിപ്രദേശങ്ങളിൽ നി ന്നും മാറ്റിത്താമസിപ്പിച്ചവരുടെ പുനരധിപാസ വേഗത്തിലാക്കുക കൂടിയാണ് ലക്ഷ്യം പ്രളയം മഴ ദുരന്തം എന്നിവയ്ക്ക് ഇരയായി വിവിധ തരത്തിൽ മാനസിക സംഘർഷങ്ങൾ നേരിട്ടിരുന്ന അരലക്ഷത്തിലധികം പേർക്ക് സാമൂഹ്യ മനശാസ്ത്ര് ഇടപെടലുകളിലൂടെ സാന്ത്വനമേ കാൻ കഴിഞ്ഞതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു

പ്രളയത്തിൽ വീടുകൾ പൂർണമായും നഷ്ടപ്പെട്ടവർക്ക് പകരം വീ ടൊരുങ്ങുന്നതു വരെ താമസിക്കാൻ സംവിധാനമൊരുക്കുമെന്ന് മ ന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പുഴകളുടെ സ്ഥാവിക ഒഴു ക്ക് തടയുന്ന വിധത്തിൽ നടപടികൾ അനുവദിക്കില്ലെന്ന് മന്ത്രി ക ണ്ണൂരിൽ അവലോകന യോഗത്തിൽ പറഞ്ഞു വെള്ളപ്പൊക്ക ദുരിതാശ്ചാസ നിധിയിലേക്ക് ലഭിച്ച പണം പ്രയോജ നപ്പെടുത്താതെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കു വേണ്ടി ഉപയോഗി ക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ വഞ്ചിക്കു കയാണെന്ന് യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാൻ എം

സാലറി ചാലഞ്ചിലൂടെ കെ

ബിക്ക് ലഭിച്ച തുക ഇതുവരെ കൈമാറാത്തത് ഇതിനു തെളിവാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു കഴിഞ്ഞ തവണ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഇതുവരെ നൽകിയിട്ടില്ലെന്നും ബെന്നിബെഹനാൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് പലയിടങ്ങളിലും കന്ത്ത മഴ് ലഭിച്ചു കണ്ണൂരിൽ പുലർച്ചെ മുതൽ മഴ ശക്തിപ്പെട്ടു

ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപി ച്ചും ് സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച് എല്ലാ ആശങ്കകളും നീങ്ങിയതായി മന്ത്രി ഡോ

കിഫ്ബി പദ്ധതികൾ നടപ്പാക്കുന്നതിലെ വേഗക്കുറവ് പരിഹരിക്കാൻ കിഫ്ബി തന്നെ നിർവ്വഹണ ഏജൻസികൾക്ക് സാങ്കേതിക സഹായം നൽകുമെന്നും തോമസ് ഐസക് പുറഞ്ഞു ഐഎൻഎക്സ് മീഡിയ കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് സിബിഐ നീക്കം ആരംഭിച്ചു

തുടർന്ന് രണ്ട് മണിക്കൂ റിനകം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഹാജരാകണമെ ന്നാവശ്യപ്പെട്ട് വീട്ടിൽ നോട്ടീസ് പതിച്ചു നോട്ടീസ് ചിദംബരത്തിന്റെ ഇമെയിൽ വിലാസത്തിൽ അയച്ചതായും സിബിഐ കേന്ദ്രങ്ങൾ അറിയിച്ചു ഹൈക്കോടതി വിധിക്കെതിരെ ചിദംബരത്തിന്റെ അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ കപിൽ സിബൽ സുപ്രീം കോടതിയെ സമീപിച്ചു ഹർജി എത്രയും വേഗം പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും രജിസ്ട്രാർ അനുവദിച്ചില്ല തുടർന്ന് കപിൽ സിബൽ ചീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ അദ്ദേഹത്തിന്റെ ചേംബറിൽ കണ്ടു ഇന്ന് മുതിർന്ന ജഡ്ജി മുമ്പാകെ ഹർജി നൽകാൻ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു

എസ് മീഡിയ ഇടപാടിലെ അഴിമതി കള്ളപ്പണം വെളു പ്പിക്കൽ കേസുകളിലാണ് ചിദംബരത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് പാലക്കാട് കല്ലേക്കാട് എ ആർ ക്യാംപിലെ സിവിൽ പൊലീസ് ഓഫീസർ എൻ കെ കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ ഡെപ്യൂട്ടി കമാൻഡന്റ് എൽ സുരേന്ദ്രനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു കേസിൽ ആദ്യ അറസ്റ്റാണിത് മണ്ണാർക്കാട് പട്ടികജാതിപ ട്ടിക വർഗ്ഗ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയു ഇയാളെ അടു ത്തമാസം മൂന്നു വരെ റിമാന്റ് ചെയ്തു സംഭവവുമായി ബന്ധപ്പെ ട്ട് നേരെത്തെ കല്ലേക്കാട് എ ആർ ക്യാമ്പിലെ ഏഴ് പൊലീസു ദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെന്റ് ചെയ്തിരു ന്നു ഇന്ത്യൻ താരവും മലയാളിയുമായ എച്ച് എസ് പ്രണോയി ലോക ബാഡ്മിന്റൺ ചാംപ്യൻഷിപ്പിന്റെ പ്രീ കാർട്ടറിൽ കടന്നു രണ്ടാം റൌണ്ടിൽ ലോക ചാമ്പൃനും ഒളിമ്പിക് ചാംപ്യനുമായ ചൈനീസ് താരം ലിൻ ഡാനെയെ ആണ് പ്രണോയി തോൽപിച്ചത് പ്രീ കാർട്ട റിൽ ഒന്നാം സ്വീഡായ ജപ്പാന്റെ കെന്റൊ മൊമൊട്ടയാണ് പ്രണോ യിയുടെ എതിരാളി ഇന്ത്യയുടെ ബി സായ് പ്രണീതും പ്രി കാർട്ട റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്

കാസർകോട് കലക്ട്രേറ്റിൽ അദാ ലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സിഐ ടിയു തൊഴിലാളികൾ എഐടിയുസിയിൽ ചേർന്നതും ലോഡിറ ക്കുന്നതും സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ച തെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ ജില്ലയിൽ ദുരിതാശ്ചാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കു ന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്ര ഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദുരിതാശ്ചാസ ക്യാമ്പുക ളുടെ പ്രവർത്തനം തടസ്സപ്പെടാത്ത വിധത്തിൽ അധ്യയനം സാധ്യ മാകുന്ന പക്ഷം അത്തരം സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല

വടക്കാഞ്ചേരി നഗരസഭ തെക്കുംകര മുളംകുന്നത്ത്കാവ് അവണൂർ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ അറിയിച്ചു തൃശൂർ എടത്തുരുത്തി പഞ്ചായത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തരമായി നടപടിയെടുക്കാൻ ജലസേചന ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കലക്ടർ എസ് ഷാനവാസ് നിർദേശം നൽകി കനോലി കനാ ലിനെയും ചിറക്കൽ ചെറുപുഴ തോടിനെയും ബന്ധപ്പെടുത്തി പു തിയ കനാൽ നിർമ്മിച്ച് കെട്ടി നിൽക്കുന്ന ജലം ഒഴുക്കിവിടാൻ വേ ണ്ട പദ്ധതി തയ്യാറാക്കാനും തോടുകളുടെ ആഴം കൂട്ടി വൃത്തിയാ ക്കാനും അദ്ദേഹം ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടു

അബ്ദുൽ നാസർ ആവശ്യപ്പെട്ടു ജനവാ സമേഖലകളിൽ വെള്ളം കയറുന്നതിന് ചെക്ക് ഡാം കാരണമാണെ ന്ന പരാതിയിൻമേൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ പഠനം നടത്തി എ ഡി എം നൽകിയ റിപ്പോർട്ടിനെ തുട്ടർന്നായിരു ന്നു കലക്ടറുടെ ഇടപെടൽ

കനത്ത നാശം ഉണ്ടായത് കട്ടപ്പന ബ്ലോക്കിലാണ്

ഇന്നലെ അന്തരിച്ച പുന്നപ്ര വയലാർ സമര സേനാനിയും വിപ്തവ ഗായികയുമായ അനസൂയയുടെ സംസ്കാരം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ആലപ്പുഴ തുമ്പോളിയിലെ വീട്ടുവളപ്പിൽ നടക്കും

കൃ ഷ്ണപ്പിള്ളയടക്കമുള്ള നേതാക്കൾക്കൊപ്പം തൊഴിലാളി സമ്മേളന ങ്ങളിൽ പാട്ടുകാരിയായിരുന്നു നിരവധി നാടകങ്ങളിലും അഭിന യിച്ചിട്ടുണ്ട്

പ്രശസ്ത അടക്ക വ്യാപാരിയും കർഷക പ്രമുഖനും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംരംഭകനുമായ കെ

ഖബറടക്കം ഇന്ന് അയിലക്കാട് ജുമുഅത്ത് പള്ളി ഖബറി സ്ഥാനിൽ നടക്കും കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണ ചന്തകളിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിനായിഅ രിയുൾപ്പടെ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടു ണ്ടെന്ന് ചെയർമാൻ എം മെഹബൂബ് കോഴിക്കോട്ട് മാധ്യമ പ്രവർ ത്തകരോട് പറഞ്ഞു ആന്ധ്രയിൽ നിന്നും ജയ അരി എത്തിക്കാൻ കരാർ ലഭിച്ച ചില കമ്പനികൾ പിൻമാറിയതിന്റെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപ്പെട്ടതിനെ തുടർന്ന് അ വർ തീരുമാനം പുനഃപരിശോധികാൻ സന്നദ്ധത അറിയിച്ചിട്ടു ണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

മലയോര കർഷകരുടെ പട്ടയം സംബന്ധിച്ചു പ്രശ്നം ഘട്ടം ഘട്ട മായി പരിഹരിക്കുന്നതിന്റെ ശ്രദ്ധേയമായ കാൽവെയ്പാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ഗവ ചീഫ് വിപ്പ് കെ